ഏറ്റമുട്ടലിൽ ഒരു മാപ്പോയിസ്റ്റ് കൊല്ലപ്പെട്ടു

ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം വേനൽ കടുത്തോടെ ഇടുക്കി അണക്കെട്ടിലെ ന് ജലനിരപ്പ് താഴ്ന്നു

പൊതു ഔഷധങ്ങളെപ്പറ്റി അവബോധത്തിനായി രാജ്യ വ്യാപകമായി ഇന്ന് ജൻ ഔഷധി ദിനം ആഘോഷിക്കുന്നു

മാവോവാദി വയനാട്ടിൽ വൈത്തിരിക്ക് സമീപം ലക്കിടിയിൽ മാവോവാദികളും പോലീസ് തണ്ടർബോൾട്ടും തമ്മിൽ ഇന്നലെ രാത്രി ഏറ്റുമുട്ടി ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു

ജലീൽ എന്ന മാവോ നേതാവ് ആണ് മരിച്ചതെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു ഏറ്റുമുട്ടൽ പുലർച്ചെ വരെ നീണ്ടുനിന്നു ആയുധ ധാരികളായ നാല് മാവോയിസ്റ്റുകളാണ് ഇന്നലെ രാത്രി ദേശീയ പാതയോട് ചേർന്ന സ്വകാര്യ റിസോർട്ടിനു സമീപം പോലീസിനുനേരെ ആക്രമണം നടത്തിയത് പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്

ഉച്ചയ്ക്ക് ന്യൂഡൽഹിയിൽ നിന്ന് പ്ലീഡിയോ കോൺഫറൻസിംഗിലൂടെ കേന്ദ്രീമുന്തി പീയൂഷ് ഗോയൽ ടെർമിനലിന് തറക്കല്ലിടും

നേമത്ത് സ്റ്റ്ട്ക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ ജി

ടെർമിന്ൽ യാഥാർത്ഥ്യമാകുമ്പോൾ വടക്കോട്ട് പോകുന്ന ട്രയിനുകൾക്ക് നേമത്ത് നിന്ന് യാത്ര പുറപ്പൈടാം കാർഷിക വായ്പ ഇടുക്കി ജില്ലയിലെ പ്രളയാനന്തര നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും കാർഷിക വായ്പകൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി ജില്ലാതല ബാങ്കേഴ്സ് സമിതിയുടെ യോഗം തൊടുപുഴയിൽ ആരംഭിച്ചു

ജില്ലയിലെ എം എൽ എമാർ കൃഷി ഡയറക്ടർ റവന്യൂ റിക്കവറി വിഭാഗം ഉദ്യോഗസ്ഥർ ജില്ലയിലെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സഹകരണ വകുപ്പുകളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ജില്ലാ സഹകരണ ബാങ്ക് കാർഷിക ഗ്രാമ വികസന ബാങ്ക് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ഹോർട്ടികോർപ്പ് മൃഗസംരക്ഷണ വകുപ്പ് ഡയറി ഡവലപ്മെന്റ് വി

കെ മണ്ണുസംരക്ഷണം എന്നിവയുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നു ഇടുക്കി ഡാം വേനൽ ശക്തിയാർജ്ജിച്ചതോടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ന്നു

ഓരോ ബ്ലോക്കിലും ഒരു ഔഷധ സ്റ്റോർ എന്നതാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് എല്ലാ ഔഷധങ്ങളും എല്ലായിടത്തും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം

പൊതു ഔഷധങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനാണ് ജൻ ഔഷധി ദിനം ആഘോഷിക്കുന്നത് ഗവർണർ ഈ മാസം ഒൻപതിന് സംസ്ഥാനത്തെ എല്ലാകോടതികളിലും നടത്തുന്ന ലോക് അദാലത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് ഗവർണർ പി

കോടതി വ്യവഹാരങ്ങൾക്കു പുറമെ വിവിധ മേഖലകളിലെ തർക്കങ്ങളും ലോക് അദാലത്തിൽ പരിഗണിക്കും ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന തർക്കങ്ങൾക്ക് പരിഹാരം കാണുകയാണ് അദാലത്തിന്റെ ലക്ഷ്യം കൊല്ലം മാസ്റ്റർ പ്ലാൻ കൊല്ലം നഗരസഭയ്ക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ സാങ്കേതിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കേന്ദ്രാപ്പിഷ്കൃത പദ്ധതിയായ അമൃത് സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് ത്യൂർറ്റാക്കുക

ജി

ജി

ടോമിൻ തച്ചങ്കരിയാണ് തീരദേശ പൊലീസ് എ

കോഴിക്കോട് സിറ്റി പൊലീസ് കമ്മീഷണറായി എ

സഞ്ജയ് കുമാർ ഗരുഡിനെ തിരുവനന്തപുരത്തും എസ് സുരേന്ദ്രനെ കൊച്ചിയിലും കമ്മീഷണർമാരായി മാറ്റി നിയമിച്ചിട്ടുണ്ട്

തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും

സി

എസ് പുരസ്ക്കാരങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്യും ലോക വനിത ദിനം ലോക വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിത കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ ഉച്ചയ്ക്കുശേഷം കൊച്ചിയിൽ മന്ത്രി കെ

മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ അവാർഡ് ദാനം നിർവ്വഹിക്കും പ്രായമേറിയ വൃദ്ധരേയും ചടങ്ങിൽ ആദരിക്കും വനിത കമ്മീഷൻ അദ്ധ്യക്ഷ എം

ജോസഫൈൻ ചടങ്ങിൽ അദ്ധ്യക്ഷത വഹിക്കും

ഒരു ജീവജാലം പോലും ഇനി മുതൽ വൈദ്യൂത്ത്രീമൂലമുള്ള അപകടങ്ങളിൽ മരണപ്പെടരുതെന്ന നീശ്ച്യദാർഢ്യമാണ് പദ്ധതിയുടെ ലക്ഷ്യം വിശദാംശങ്ങളുമായി ആകാാ്ശ്വാണ്ി പത്തനംതിട്ട പ്രതിനിധി ബിജി വർഗ്ഗീസ്

ജില്ലയിലെ എല്ലാ ഹോമിയോ ഡിസ്പൻസറികളിലും പ്രതിരോധ മരുന്ന് ലഭ്യമാകുമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു

ജെ

സംസ്ഥാന ജനറൽ സെക്രട്ടറി എം

രമേശ് നയിക്കുന്ന പരിവർത്തന യാത്ര കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടങ്ങി രാവിലെ തളിപ്പറംബിൽ നിന്ന് ആരംഭിച്ച യാത്ര ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനത്തിനു ശേഷം വൈകിട്ട് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സമാപിക്കും നാളെ കൂത്തുപറമ്പ്പാനൂർ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്കുശേഷം കോഴിക്കോട്ടേക്ക് പോകും

ഇന്ന് ആലത്തൂർ തരൂർ നെന്മാറ ചിറ്റൂർ മണ്ഡലങ്ങളിൽ യാത്രക്ക് സ്വീകരണം നൽകും

കർഷക ജപ്തി ഇടതു ഗവൺമെന്റിന്റെ ക്ര്ൻഷകവിരുദ്ധ നയങ്ങളിലും ബാങ്കുകളുടെ കർഷക ജ്പ്തി നടപടികളിലും പ്രതിഷേധിച്ച് ബി ജെ

കർഷകമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ഇടുക്കി താലൂക്ക് ഓഫീസ് ഉപരോധസമരവും നടത്തി

പ്രവാസി മലയാളികളിൽ നിന്ന് കേരളത്തിലേക്ക് നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് സെന്റർ തുറക്കുന്നത്

നേരത്തെ നല്കിയ ഉറപ്പ് ലംഘിച്ചാണ് സ്വകാര്യവൽക്കരണമെന്നും തുടർ നടപടികളിൽ അവ്യക്തത ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നല്കിയിട്ടുളളത് കണ്ണൂർ വിമാനത്താവളം കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് അടുത്ത മാസം രണ്ടു മുതൽ എയർ ഇന്ത്യയുടെ ഡൽഹി സർവ്വീസ് ആരംഭിക്കും ഡൽഹിയിൽ നിന്ന് കണ്ണൂർ വഴി കോഴിക്കോട്ടേക്കും സർവ്വീസുണ്ടാകും ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്

കാക്ക്കൂട് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ സരിൽ ഉദ്ഘാടനം നിർവ്വഹിച്ചു

വാതിൽ സമർപ്പണഘോഷയാത്ര പള്ളിക്കൽത്തൊട് ഇളംപള്ളി ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നും പത്താം തീയതി പുറപ്പെടും